സഹായോപകരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ വിതരണം ചെയ്തു

സർക്കാർ കൂടുതൽ ആത്മവ്വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

സമൂഹമാധ്യമങ്ങ്ൾ വഴി വിദ്വേഷ പ്രചാരണങ്ങൾ ന് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡൽഹി പൊലീസ്

രണ്ടു ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും

ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റ് വിജയം

ക്യാമ്പിൽ പങ്കെടുത്ത വയോജനങ്ങളുമായും ദിവ്യാംഗരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ഇരുപത്തിഏഴായിരം വയോജനങ്ങൾക്കും ദിവ്യാംഗർക്കുമായി അൻപത്തിയാറായിരം സഹായ ഉപകരണങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ഇത് സർക്കാരിന്റെ മുന്നോട്ടുളള പ്രയാണത്തിന് പ്രചോദനമാകുമെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു മുംബൈയിൽ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ ധനകമ്മി സംബന്ധിച്ച് ഗവൺമെന്റ് ആവുന്നതെല്ലാം ചെയ്തതായും കൂടുതൽ നടപടികൾ ആലോചിച്ചു വരുന്നതായും കേന്ദ്ര മന്ത്രി വൃക്തമാക്കി

കോർപ്പറേറ്റ് നികുതിയിളവ് വ്യക്തിഗത നികുതിയിളവ് നേരിട്ടുളള ആനുകൂല്യ വിതരണം എന്നിവയിലൂടെ വളർച്ചാ നിരക്കിലുളള കുറവ് പരിഹരിക്കാനാകുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വൃക്തമാക്കി

അച്ചടക്കവും ആദർശവും അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയമായിരുന്നു മൊറാർജി ദേശായിയുടേതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം നടന്ന ന്യൂസിലന്റ് വാണിജ്യമന്ത്രി ഡേവിഡ് പാർക്കറും അദ്ദേഹത്തോടൊപ്പമുായിരുന്നു

ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര ശർമ്മയുമൂയി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ബ്രജ് രാജ് ശർമ്മിനട്ടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം

മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തെ ശിവസേന എതിർത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു ശിവസേന പ്രസിഡന്റ് ഉദ്ദവ് താക്കറെ കോൺഗ്രസ് എൻസിപി സഖ്യ സർക്കാരിൽ നിന്നും പുറത്തു പോകണമെന്നും ബി ജെ

യുമായി വീണ്ടും സഖ്യത്തിനു തയ്യാറാവണമെന്നും മുംബൈയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു

സമൂഹ മാധ്യമങ്ങൾ പൊലീസ് നിരീക്ഷിച്ചു വരുന്നതായും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പൊലീസ് അറിയിച്ചു

ഇന്നലെ ജമ്മുവിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് അദ്ദേഹം പദ്ധതി വിലയിരുത്തിയത്

എന്നാൽ കൊറോണ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്നു പിന്മാറാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു

എസ് അഫ്ഗാനിസ്ഥാൻ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ള കാബൂളിലെത്തി അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഘാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ കത്തും അദ്ദേഹം കൈമാറി അഫ്ഗാനിസ്ഥാന്റെ അഖണ്ഡതയെയും തീവ്രവാദത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യ വക്താപ്പ് ത്യൂറിച്ച് കുമാർ ട്വീറ്റിലൂടെ വ്യക്തമാക്കി

ജന്യൂഗിപത്യം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള അഫ്ഗാനിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് ഇത് മു്തൽകൂട്ടാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി

ഈ ഉടമ്പടി പ്രകാരം അമേരിക്കൻ സൈനൃം പൂർണ്ണമായും അഫ്ഗാൻ മണ്ണിൽ നിന്ന് പിൻമാറും

വ്യാപാരികൾക്കും കയറ്റുമതിക്കാർക്കും വൻ സാധ്യതയാണ് മേളയിലൂടെ സാധ്യമാകുന്നത് കാർഷിക വരുമാനം ഇരട്ടിയാക്കുക എന്ന കേന്ദ്രസർക്കാരിന്റെ ലക്ഷ്യം സാധ്യമാക്കാനുദ്ദേശിച്ചുള്ളതാണ് ഈ മേള

ഗ്രൂപ്പിലെ നാല് മത്സരവും ജയിച്ച ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു